അവസാന പാദത്തിലേക്ക് കടന്നു

ഇടക്കാല ഉത്തരവ് ഒരാൾ ഒ്ന്നിലേറെ വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് തിര്ഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം

ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ

എസ്

പാസെക്സ് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് സമാപിക്കും

എ പ്രപ്പ്ചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് എത്തും

ഡി

കൊല്ലം തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കും

ഡി എഫ് പ്രചാരണത്തിനായി സിപിഐ എം ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എന്നിവർ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്

സി പി നേതാവ് പ്രഫുൽ പട്ടേലും എൽ ഡി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്നത്

ഡി എക്കായി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ഗിരിരാരജ് സിംങ് ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരും പ്രചരണ രംഗത്തുണ്ട്

എ സ്ഥാനാർത്ഥികളുടെ പ്രചരണാരണത്തിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ കേരളത്തിൽ എത്തും

പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന മുൻസിപ്പൽ സ്റ്റേഡിയം സമ്മേളന വേദിയായ കോട്ട മൈതാനം എന്നിവടങ്ങളിലെ സുരക്ഷാ സംവിധാനം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഏറ്റെടുത്തു നഗരത്തിലും പരിസരത്തും പ്രത്യേക സുരക്ഷാ പരിശോധന നടത്തും ഇന്ദിരാ ഗാന്ധി സ്റ്റേഡിയത്തിൽ ഹെലികോപ്ടറിൽ പരീക്ഷണ പറക്കൽ നടത്തി പ്രധാനമന്ത്രി സമ്മേളന വേദിയിലേയ്ക്കെത്തുന്ന റോഡു വഴി ഇന്ന് പരീക്ഷണ ഓട്ടം നടത്തും

ഒമ്പത് മണ്ഡലത്തിലെ എൻ

ഒരു വോട്ടർ പുതിയ വിലാസത്തിൽ വോട്ട് ചേർക്കുമ്പോൾ പഴയ വോട്ട് ഇല്ലാതാകാൻ ഉള്ള സംവിധാനം ഇല്ലേ എന്നും കോടതി ചോദിച്ചു ഇതിനാവശൃമായ എന്ത് നടപടി സ്വീകരിക്കാനാവുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ കോടതിയെ അറിയിക്കണം പൌരന്മാരുടെ അവകാശം സംബന്ധിച്ച ഗൌരവമുള്ള ഒരു വിഷയമാണിതെന്ന് പറഞ്ഞ ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും ഇരട്ട വോട്ട് വിഷയത്തിൽ രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇരട്ട വോട്ടുള്ളവരുടെ വോട്ട് മരവിപ്പിക്കാൻ കോടതി തയ്യാറായില്ല

നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള തപാൽ വോട്ടിങ്ങും തുടങ്ങി

ഗുരുവായൂരിലും തലശ്ശേരിയിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജ്യീക്കണമെന്ന ബി ജെ

നേതാവിന്റെ പ്രസ്താവന നാക്കു പിഴ ്മാത്രമല്ല

എ ഖാദർ എന്ന മുസ്തിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ബി ജെ

നേതാവ് ആശീർവാദം നൽകിയത് ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിൽ കച്ചവട മുറപ്പിച്ചു കഴിഞ്ഞുവെന്നതിന് തെളിവാണ് കോൺഗ്രസും ലീഗും വോട്ടു കൂടുതൽ കിട്ടുന്നതിന് ഏതറ്റം വരെ പോകും എന്നതിന് തെളിവാണിതെന്നും പിണറായി പറഞ്ഞു കേരളത്തിന്റെ പുരോഗതി അട്ടിമറിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ യു ഡി എഫും ബി ജെ

യും തമ്മിൽ ധാരണ വേണമെന്ന തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടെന്നും ശ്രീ പിണറായി പറഞ്ഞു

ഉദുമയിൽ മുസ്ലീം ലീഗ് സിപിഐ എമ്മിനെയും മഞ്ചേശ്വരത്ത് സി പിഐ എം ലീഗിനെയും പരസ്പരം സഹായിക്കുകയാണെന്നും ശ്രീ കെ

സംസ്ഥാനം കരാറുണ്ടാക്കിയാലും കേന്ദ്രം അംഗീകരിക്കില്ലെന്നും ശ്രീ

ഇന്തോ പസഫിക് മേഖലയിലെ പങ്കാളികളും സഖ്യ രാഷ്ട്രങ്ങളുമായി ബന്ധം ശക്തമാക്കാനായുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നടപടിയുടെ ഭാഗമായി യു

മെക്സിക്കോ ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗവ്യാപനം വർദ്ധിക്കുകയാണ്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായ്ഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു കൂടുതൽ വിവരങ്ങളുമായി ആതിരാ ബാലൻ

എങ്കിലും നിറങ്ങളുടെ ഉത്സവമായാണ് ഹോളി അറിയപ്പെടുന്നത് വസന്തത്തെ വരവേൽക്കുന്നതിനോട്ടൊപ്പം തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന കൃഷ്ണന്റെയും അനശ്വര ഐക്യുള്ത്ത് പ്രതിനിധീകരിക്കുന്ന ഉത്സവവുമാണ് ഹോളി മഹാവിഷ്ണു്വിനെയും ദേവിയെയുമാണ് ഹോളി ദിവസം ആരാധിക്കുന്നത്

ഹോളി സാമൂഹ്യ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് നൽകുന്നതെന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പറഞ്ഞു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധൃവും ദേശീയതയും കൂടുതൽ ശക്തമാക്കാൻ ഹോളി ആഘോഷം കാരണം ആകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാവണം ആഘോഷങ്ങളെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഓർമപ്പെടുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കപ്പൽ വീണ്ടും ചലിച്ചു തുടങ്ങി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ എവർഗ്ഗിവൺ ചൊവ്വാഴ്ച രാവിലെയാണ് സൂയസ് കനാലിൽ കൂട്ടൂങ്ങിയത്

രാത്രികാല വിമാന സർവീസ് നടത്താൻ ഡി ജി സി എ കഴിഞ്ഞ ദിവസമാണ് അനുമതി നൽകിയത്